സമ്പൂർണ്ണ ലോക് ഡൌൺ പ്രഖ്യാപിച്ചു

പി ലോക്നാഥ് ബെഹ്റ

കെ ശശീന്ദ്രൻ നിർദേശം നൽകി വാർത്തകൾ വിശദമായി മാരകമായ കൊറോണ വൈറസ് വ്യാപനം തടയാൻ രാജ്യത്ത് ഇന്നലെ അർദ്ധരാത്രി മുതൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു

ജനങ്ങൾ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെത്തന്നെ പുറത്തിറങ്ങാതെ ലോക്ഡൌൺ കാലത്ത് കഴിഞ്ഞുകൂടണമെന്ന് പ്രധാനമന്ത്രി കൂപ്പുകയ്യോടെ അഭ്യർത്ഥിച്ചു

പരിഭ്രാന്തി വേണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദേദ ലോക്ഡൌൺ കാലയളവിൽ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രായസങ്ങൾ കുറയ്ക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു മുൻകൂട്ടി തയാറാക്കിയ ഭക്ഷണങ്ങൾ ഉറപ്പു വരുത്തണമെന്നും ഇവ വീടുകളിൽ എത്തുച്ചു നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു

കാസർകോട് ജില്ലയിൽ ആറും കോഴിക്കോട് ജില്ലയിൽ രണ്ടും മലപ്പുറം പാലക്കാട് കോട്ടയം എറണാകുളം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

ദുബായിൽ നിന്ന് വന്ന എട്ട് പേർക്കും ഖത്തർ യു കെ എന്നിവിടങ്ങളിൽ നിന്നു വന്ന ഓരോരുത്തർക്കുമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒരു ആരോഗ്യ പ്രവർത്തകനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്

ദദ ഡൽഹിയിൽ കോവിഡ് ബാധിച്ച് ഒരാൾകൂടി മരിച്ചതോടെ രാജ്യത്ത് മരണസംഖ്യ പത്തായി

എ

ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എല്ലാ റാങ്കിലേയും പൊലീസ് ഉദ്യോഗസ്ഥർ നിരത്തിലിറങ്ങണമെന്ന് പൊലീസ് മേധാവി നിർദേശിച്ചു മലപ്പുറം ജില്ലയിൽ നിരോധനാജ്ഞ ലംഘിച്ചതിന് പൊലീസ് അഞ്ചുകേസുകൾ രജിസ്റ്റർ ചെയ്തു പത്ത് പേരെ അറസ്റ്റ് ചെയ്തതായി ജില്ലാ പൊലീസ് മേധാവി യു

ദേദ സ്വകാര്യവാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിന് പൊലീസിന്റെ പാസ് ആവശ്യമില്ലെന്നും സ്വയം തയ്യാറാക്കി നൽകുന്ന സത്യവാങ്മൂലം മതിയാകുമെന്നും പൊലീസ് അറിയിച്ചു അവശ്യഘട്ടത്തിൽ മാത്രമേ സ്വകാര്യ വാഹനം ഉപയോഗിക്കാവൂവെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്

കെ ശശീന്ദ്രൻ ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദേശം നൽകി സംസ്ഥാനത്ത് നിന്ന് ചരക്കുമായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയ നിരവധി വാഹനങ്ങൾ മഹാരാഷ്ട്ര കർണാടക തെലങ്കാന എന്നിവിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ നിർദേശം

ഈ സാഹചര്യത്തിൽ ശബരിമല നട ഉത്സവത്തിനായി തുറക്കുകയില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ

തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും നിറുത്തി വെയ്ക്കാനും ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചു ദര വ്യാപനത്തെത്തുടർന്നു തൊഴിൽരഹിതരായിരിക്കുന്ന കൊറോണാ മത്സ്യത്തൊഴിലാളികളുടെ വായ്പാതുക തിരിച്ചടവിൽ രണ്ടു മാസത്തെ സാവകാശം അനുവദിച്ചതായി മത്സ്യഫെഡ് ചെയർമാൻ പി

മൈക്രോ സംരംഭ വായ്പയടക്കം എല്ലാ വായ്പകൾക്കും ഈ സാവകാശം ലഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു

രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും രണ്ടു മുതൽ വൈകീട്ട് അഞ്ചു വരെയുമായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക ദദം കേരളതമിഴ്നാട് അതിർത്തിയിലെ രാശിങ്ങാപുരം വണ്ണാൻ തുറക്ക് സമീപം കാട്ടുതീയിൽ പെട്ട രണ്ട് പേർ മരിച്ചു

ഇടുക്കി ശാന്തൻപാറ പേത്തൊട്ടിക്ക് സമീപം ഏലത്തോട്ടത്തിൽ ജോലിക്ക് എത്തിയ ശേഷം ഞണ്ടാർ വനമേഖലയിൽ കൂടി തമിഴ്നാട്ടിലേക്ക് നടന്നുപോയ എട്ട് അംഗ സംഘമാണ് കാട്ടുതീയിൽ അകപ്പെട്ടത് രമേ എല്ലായിടത്തും കുടിവെള്ളം ഉറപ്പാക്കാൻ വാട്ടർ അതോറിറ്റി പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കുടിവെള്ള വിതരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചതായി ജോയിന്റ് മാനേജിങ് ഡയറക്ടർ തിരുവനന്തപുരത്ത് അറിയിച്ചു ദേദ കോഴിക്കോട് ജില്ലയിലെ കോവിഡ് കേസുകളുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണെന്നും ഏതാനും നാളുകൾ അതീവ ജാഗ്രത ആവശ്യമുള്ള കാലമാണെന്നും ജില്ലാ കലക്ടർ സാംബശിവ റാവു പറഞ്ഞു ക്വാറന്റൈനിൽ കഴിയുന്ന വ്യക്തികൾ നിർദേശിച്ച കാലയളവ് വരെ മറ്റാരുമായും സമ്പർക്കം കൂടാതെ വീടുകളിൽ നിർബന്ധമായും കഴിയണമെന്നും കലക്ടർ അഭ്യർഥിച്ചു ജില്ലയിൽ ക്വാറന്റൈനിൽ കഴിയുന്ന വ്യക്തികൾക്കാവശ്യമായ സഹായങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണ സാമഗ്രികൾ സമയബന്ധിതമായി എത്തിക്കുന്നതിന് ജില്ലാതലം മുതൽ വാർഡ് തലം വരെ വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്

ദ്ദേ കണ്ണൂരിൽ ഇന്നലെ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയതില്ല പരിശോധന ഫലം നെഗറ്റീവ് ആയതിനെ തുടർന്ന് ഒരാൾ ആശുപത്രി വിട്ടു

ദ്ദേ മഞ്ചേരി മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ കഴിയുന്ന അഞ്ച് വൈറസ് ബാധിതരുടേയും ആരോഗ്യ നില തൃപ്തികരമാണെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

മഞ്ചേരി ഗവ